വ്യാപകമായി അക്രമ സംഭവങ്ങൾ കോഴിക്കോട് മിഠായിതെരുവിൽ സംഘർഷം തുറന്ന കടകൾ ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു വടക്കൻ ജില്ല കളിൽ ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു

കോടതി വിധിയോട് എതിർപ്പുണ്ടെങ്കിൽ തന്ത്രി സ്ഥാനം ഒഴിയ ണമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി

രു ൽ ശബരിമലയിൽ രണ്ട് യുവതികൾ ക്ഷേത്രദർശനം നടത്തിയതിൽ പ്രതി ഷേധിച്ച് ശബരിമല കർമസമിതി ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താ ലിൽ വ്യാപകമായ ആക്രമ സംഭവങ്ങൾ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഹർത്താൽ അനുകൂലികൾ ഗതാഗതം തടസ്സപ്പെടുത്തുകയും തുറന്നകടകൾ അടപ്പിക്കുകയും ചെയ്തു കെഎസ്ആർടിസി ബസുകൾ ഓടുന്നില്ല അപൂർവം സ്വകാര്യ വാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് കോഴിക്കോട്ട് ഹർത്താൽ ഏറെക്കുറെ പൂർണമാണ് ജില്ലയിൽ രാവിലെ മുതൽ തന്നെ റോഡുകളിൽ ടയർ കൂട്ടിയിട്ട് കത്തിച്ചും മരങ്ങളും കല്ലു കളും വലിച്ചിട്ടും ഗതാഗതം തടസ്സപ്പെടുത്തി കോഴിക്കോട് പാറോപ്പടി ബേപ്പൂർ കൊയിലാണ്ടി കുന്ദമംഗലം ഭാഗങ്ങളിൽ ഹർത്താലനുകൂലികൾ ഗതാഗതം തടഞ്ഞു ഓമശേരി കൊയിലാണ്ടി പേരാമ്പ്ര എന്നിവിടങ്ങ ളിലും ഹോട്ടലുകൾക്കും കടകൾക്കും വാഹനങ്ങൾക്കും നേരെ കല്ലേറു ണ്ടായി കോഴിക്കോട് മിഠായിതെരുവിൽ വ്യാപാരി വൃവസായി സംഘടനകൾ കടകൾ തുറന്നെങ്കിലും ഹർത്താൽ അനുകൂലികൾ സംഘടിച്ചെത്തി കട കളടപ്പിക്കാൻ ശ്രമിച്ചു

മിഠാ യിതെരുവിലെ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഹർത്താൽ അനുകൂലി കളെ പൊലീസ് പിടികൂടി കടകൾക്ക് സംരക്ഷണം നൽകാൻ ഡിവൈ എഫ്ഐ പ്രവർത്തകരും രംഗത്തെത്തി

അതിനിടെ പൊലീസ് അക്രമികൾക്ക് ഒത്താശ ചെയ്യു കയാണെന്ന് വൃാപാരികൾ ആരോപിച്ചു ആക്രമണം നടത്തിയവരുടെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും പരാതി നൽകുമെന്നും വ്യാപാരികൾ അറി യിച്ചു കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഹർത്താൽ ഏറെക്കുറെ പൂർണമാ ണ് കണ്ണൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്താനും കടകളടപ്പിക്കാനും എത്തിയ ഹർത്താൽ അനുകൂലികളും പൊലിസും തമ്മിൽ സംഘർഷമുണ്ടായി റെയിൽവെ സ്റ്റേഷന് മുന്നിലെ തുറന്ന കടകൾ ഹർത്താൽ അനുകൂലി കൾ അടപ്പിച്ചു ഒരു ബേക്കറിക്ക് നേരെ ആക്രമണമുണ്ടായി പയ്യന്നൂർ എടാട്ട് കെഎസ്ആർടിസി ബസിന് നേരെ കല്പേറുണ്ടായി ഇരുചക്രവാഹ നങ്ങൾ ഒഴികെ മറ്റുവാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടില്ല കാസർകോട് ജില്ലയിലും ഹർത്താൽ ഏറെക്കുറെ പൂർണമാണ് കെഎ സ്ആർടിസി സ്വകാര്യ ബസുകൾ നിരത്തിലിറങ്ങിയിട്ടില്ല ബോവിക്കാ നത്ത് കടകളടപ്പിക്കാൻ ശ്രമിച്ച ഹർത്താൽ അനുകൂലികൾക്ക് നേരെ പൊലിസ് ലാത്തി വീശി

പൊന്നാനിയിൽ ജലപീരങ്കി ഉപയോഗിച്ചു

സിപി ഐഎം ഓഫീസിനു നേരെ കല്ലേറ് നടത്തിയതിനെ തുടർന്ന് ഇരുപാർട്ടി കളിലെയും പ്രവർത്തകർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി കല്ലേറിൽ ഏതാ നുംപേർക്ക് പരിക്കേറ്റു മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു പൊതുഗതാ ഗത സംവിധാനം പൂർണമായും തടസ്സപ്പെട്ടു വ്യാപാര്യ വാണിജ്യ സ്ഥാപ നങ്ങളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നില്ല പുന്ലൂരിൽ ട്രെയിനിലെ ത്തിയ ശബരിമല തീർഥാടകർക്കായി കെഎസ്ട്ആർടിസി പ്രത്യേക സർവീസ് നടത്തി പത്തനംതിട്ട ജില്ലയിൽ ഹർത്താൽ പൂർണമാണെങ്കിലും ശബരിമലയിൽ ഇപ്പോഴും തീർഥാടക തിരക്ക് തുടരുകയാണ് പത്തനംതിട്ടയിലും തിരുവ ല്ലയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുവെങ്കിലും അനിഷ്ട സംഭവങ്ങ ളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ സംഘർഷത്തിൽ ഒരാൾ മരിച്ച പന്തളത്ത് ഇന്നും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ശബരിമല കർമ സമിതിയും ബിജെപിയും നടത്തിയ മാർച്ചും അക്രമാസക്തമായി മാധ്യമ പ്രവർത്ത കർക്ക് നേരെയും അക്രമമുണ്ടായി മലപ്പുറം തവനൂരിൽ സിപിഐഎം ബ്രാഞ്ച് ഓഫീസ് അജ്ഞാതർ തീ യിട്ട് നശിപ്പിച്ചു തവനൂർ അങ്ങാടിയിലെ കോൺക്രീറ്റ് കെട്ടിടത്തിൽ പ്ര വർത്തിക്കുന്ന പാർട്ടി ഓഫീസിനു നേരെ പുലർച്ചെ രണ്ട് മണിയോടെ യായിരുന്നു ആക്രമണം

പൊലീസ് സ്ഥലത്ത് കൃാംപ് ചെയ്യുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂരിനടുത്ത് എടാട്ട് കാസർകോട്ടേക്ക് പോവുകയായിരുന്ന രണ്ട് കെ

സി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി അക്ര മത്തെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചു കാസർകോട് നീലേശ്വരത്ത് ബിജെപി ഓഫീസ് ഒരുസംഘം ആളുകൾ അടിച്ചു തകർത്തു

സംഘടിച്ചെത്തിയ സിപിഐഎം പ്രവർത്തകർ ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു വെന്ന് ബിജെപി ആരോപിച്ചു ഫർണിച്ചറുകൾ മുഴുവനായും നശിപ്പിച്ച് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപ അക്രമികൾ ക്വർന്നതായും ബിജെപി നേതാക്കൾ പറഞ്ഞു തൃശൂർ നഗരത്തിൽ കടതുറക്കാനെത്തിയ വ്യാപാരികളെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു

ശക്തൻനഗറിൽ കർണാടക ആർ ടി സി ബസിന് നേരെ കല്ലേറുണ്ടായി കുഴൂരിൽ സിപിഐഎം ഓഫീസിനും കൊച്ചുകടവിൽ ബിജെപി ഓഫീസിനും നേരെ കല്ലേറുണ്ടായി പൊലിസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ഒരു പോലിസുകാരന് പരിക്കേറ്റു ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ സംഘ്പരിവാറിന്റെ അക്ര മങ്ങൾ വെച്ച് പൊറുപ്പിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്തമാക്കി

സുപ്രിംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനാപരമായ ചുമതല നിറവേറ്റേ ണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ കോടതി വിധിക്കെതിരാണ് ശബരിമലയെ സംഘർഷഭരി തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അക്രമ പ്രവർത്തനങ്ങൾ തുടരു ന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമലയിലെത്തിയ രണ്ട് യുവതികൾക്ക് സംരക്ഷണം ഒരുക്കി എന്ന തിനപ്പുറം യാതൊരു പരിഗണനയും ഗവൺമെന്റ് നൽകിയില്ല അവിടെ യുണ്ടായിരുന്ന ഭക്തർ തന്നെയാണ് അവർക്ക് സൌകര്യം ഒരുക്കിക്കൊടു ത്തത് ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവ രാണ് സംസ്ഥാനത്ത് കുഴപ്പമുണ്ടാക്കുന്നത് ആത്മഹത്യുടെയും അപകട മരണത്തിന്റെയും പേരിൽ മൂന്ന് മാസ ത്തിനിടെ അഞ്ച് ദിവസം ഹർത്താൽ നടത്തിയവരാണ് സംഘ്പരിവാർ സംഘടനകൾ അവരുടെ ഉദ്ദേശം ഈ വിഷയത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു യുവതീ പ്രവേശനത്തിന്റെ പേരിൽ നടയടച്ച തന്ത്രിയുടെ നിലപാട് സുപ്രിംകോടതി വിധിക്കെതിരെയാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെ ടുത്തി തന്ത്രി കൂടി കക്ഷിയായ കേസിലാണ് സുപ്രിംകോടതി അവരുടെ വാദങ്ങൾ തള്ളി യുവതീ പ്രവേശനം അനുവദിച്ചത് കോടതി വിധിയോട് എതിർപ്പുണ്ടെങ്കിൽ കേസിൽ കക്ഷിയായിരുന്ന തന്ത്രി സ്ഥാനം ഒഴിയണ മായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടതിവിധിയുടെ മാത്രമല്ല ദേവസ്വം ബോർഡ് നിയമങ്ങളുടെ കൂടി ലംഘനമായത് കൊണ്ടാണ് ഇതേ പറ്റി തന്ത്രിയോട് വിശദീകരണം തേടിയതെന്നും മുഖ്യമന്ത്രി വിശദീകരി ച്ചു

ശബരിമലയിൽ യുവതികൾ കയറിയതിനെ തുടർന്ന് നടയടച്ച് ശുദ്ധി ക്രിയ നടത്തിയത് കോടതിയലക്ഷ്യമാണെന്ന് കാട്ടി സമർപ്പിച്ച ഹർജി സുപ്രിംകോടതി പരിഗണിച്ചില്ല അടിയന്തര പ്രാധാന്യത്തോടെ കേസ് പരി ഗണിക്കണമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചില്ല ശബ രിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജികൾ ഈ മാസം പരിഗണിക്കു മ്പോൾ ഈ കേസിലും വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചു ഭരണ ഘടന ബെഞ്ച് ഇടക്കിടെ ചേരുന്നത് പ്രായോഗികമല്ലെന്ന് കോടതി വ്യക്ത മാക്കി വനിതാ അഭിഭാഷകരായ എ വി വർഷയും ഗീനാകുമാരിയുമാണ് ഹർജി നൽകിയത് സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമരങ്ങൾ വ്യാപാരികൾക്കെതി രായി മാറരുതെന്ന് വ്യാപാരി വൃവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ധീൻ കോഴിക്കോട്ട് പറഞ്ഞു രാഷ്ട്രീയ സമരങ്ങ ളുടെ ഉത്തരവാദിത്തം രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് വ്യാപാരികൾക്ക ല്ല ഇന്നത്തെ ഹർത്താലിൽ നിന്ന് വ്യാപാരികളെ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ബി

പി സംസ്ഥാന പ്രസിഡന്റ് പ്പി എസ് ശ്രീധരൻപി ള്ളയോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ലോക്സഭയിൽ കേരളത്തിലെ യു ഡി എഫ് എം

അവിശ്വാസികളായ ആക്ടി വിസ്റ്റുകളെ ഗവൺമെന്റ് ശബരിമലയിൽ കയറ്റിയെന്ന് നോട്ടീസിൽ ആരോ പിക്കുന്നു കേരളത്തിലെ ബിജെപി ആർ എസ് എസ് ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശൃപ്പെട്ട് രാജൃസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് സിപിഐഎമ്മിലെ എളമരം കരീം ആണ് ശബരിമലു വിഷയത്തിൽ യു ഡി എഫ് എം പിമാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി ശബരിമലയിൽ രണ്ട് യുവതികൾ രഹസ്യമായി പ്രവേശിച്ച നടപടി സ്ഥാഗ താർഹമല്ലെന്ന് സി

ഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അഭിപ്രാ യപ്പെട്ടു പരസൃമായി യുവതികൾ ശബരിമലയിലെത്തണമെന്നാണ് പാർട്ടി നിലപാടെന്ന് അദ്ദേഹം ഹൈദരാബാദിൽ പറഞ്ഞു

എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഇക്കാര്യം കേന്ദ്രശ്രദ്ധയിൽ കൊണ്ടുവരും ശബരിമല കർമസമിതിയുടെ ഹർത്താൽ സമാധാനപര മായിരിക്കുമെന്നും ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ചേതേ ശ്വർ പൂജാരയ്ക്ക് സെഞ്ചറി

ഹനുമ വിഹാരിയാണ് പൂജാരക്കൊപ്പം ക്രീസിൽ

എൽ രാഹുൽ മായങ്ക് അഗർവാൾ വിരാട് കോഹ്ലി അജിങ്ക്യേ രഹാനെ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായ ത്

പന്തളത്ത് കല്ലേറുണ്ടായപ്പോൾ പൊലീസ് ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന് മരിച്ച ചന്ദ്രൻ ഉണ്ണിത്താന്റെ കൂടുംബം പറഞ്ഞു സമാധാനപരമായി പ്രക ടനം നടത്തിയ ശബരിമല കർമ സമിതിയുടെ നേർക്ക് സിപിഐഎം ആക്ര മണം നടത്തുകയായിരുന്നുവെന്നും അവർ ആരോപിച്ചു